ഏതു സാഹചര്യവും നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ

നിരീക്ഷണത്തിൽ രണ്ട് നേഴ്സ്റുമാര്ട്ക്കം നാല് പേർക്ക് കൂടി പനി ബാധ കേരളത്തിന് എല്ലാ സൃഹായവും ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ന് ആരോഗൃമന്ത്രി ഹർഷിപ്പർദ്ധൻ നിപാ ചികിൽസയ്ക്കുള്ള മരുന്ന് വിമാനത്തിലെത്തിക്കും

എല്ലാ പിന്തൂണയും നൽകുമെന്നും ഒറ്റക്കെട്ടായി രോഗത്തെ ചെറുക്കാമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

പങ്കെടുപ്പിച്ചുകൊണ്ട് ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും

ഒരു മാസത്തെ വ്രതാനുഷ്ടാനത്തിന് പരിസമാപ്തികുറിച്ച് നാളെ ഈദ് ഉൽ ഫിത്തർ നിപ കൊച്ചി പനിയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുളള വിദ്യാർത്ഥിക്ക് നിപ സ്ഥിരീകരിച്ചു പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിച്ചതായി മന്ത്രി കെ

വിദ്യാർത്ഥിക്ക് പുറമെ രണ്ട് നെഴ്സുമാർ ഉൾപ്പെടെ നാല് പേർ നിരീക്ഷണത്തിലുണ്ട് ഒരാൾ രോഗിയുടെ സഹപാഠിയാണ്

ഇക്കാരൃത്തിൽ കേന്ദ്രഗവൺമെന്റിൽ നിന്ന് നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചിക്രിത്സയ്ക്കായി കൂടുതൽ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കുമെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു നിപ ഇൻട്രോ സംസ്ഥാനത്ത് വീണ്ടും തിപ ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഭയപ്പാടല്ല ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് അനിവാര്യം നിപ വൈറസിനെപ്പറ്റി വ്യാജ പ്രചാരണങ്ങൾ നടത്താതിരിക്കുക എന്താണ് രോഗമെന്നും അതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെന്നും എല്ലാവർക്കും അവബോധം ഉണ്ടാകണം ഒരു റിപ്പോർട്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി ഹർഷവർദ്ധൻ കേരളത്തിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ വർദ്ധൻ അറിയിച്ചു

നിപ ചികിത്സക്കുള്ള മരുന്ന് വിമാനത്തിൽ കേരളത്തിലെത്തിക്കും കേന്ദ്രത്തിലും കൺട്രോൾ റൂം തുറന്നു

കേരളം ആവശ്യപ്പെടുന്ന എന്ത് സഹായവും ലഭ്യമാക്കാൻ കേന്ദ്രം തയ്യാറാണ് ആശങ്കപ്പെടാനുള്ള സാഹചര്യം നിലവിൽ ഇല്ലെന്നും കേന്ദ്രമന്ത്രി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

അതിനാൽ കുറഞ്ഞത് പതിനാല് ദിവസമെങ്കിലും പൊതുജന സമ്പർക്കം ഒഴിവാക്കണമെന്നാണ് നിർദേശിച്ചിരിക്കുന്നത് നിപ നിപ ബാധയോടനുബന്ധിച്ച് ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നടപടികളോടും പ്രതിപക്ഷം സഹകരിക്കുമെന്നും എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു ഇതിനെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രശ്നം നിസ്സാരവത്കരിക്കാതെ വേണ്ട ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രി കെ

ശൈലജയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കുശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു നിപ ബാധ സംബന്ധിച്ചു അവബോധം എല്ലാ ജില്ലകളിലും നടത്തണമെന്നും അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കാതിരിക്കാൻ സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധപുലർത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു

രോഗം ബാധിച്ച വിദ്യാർത്ഥിയുടെ സഹപാഠികളുടെ വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

മൂന്നുപേർക്കും നിലവിൽ പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു

മുന്നൊരുക്കമെന്ന നിലയിൽ ജില്ലാ ആശുപത്രിയിലും പാരിപ്പള്ളിയിലെ ഗ്രവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു

ജില്ലയിൽ ആർക്കും തന്നെ നിപ ബാധയുളളതായി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ഡി എം ഒ കെ

മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും മുൻകരുതൽ എന്ന നിലയിൽ ഐസൊലേഷൻ വാർഡുകൾ തുറന്നിട്ടുണ്ട്

വരും ദിവസങ്ങളിൽ ഒരു കോടി പച്ചക്കറി തൈകളും ഒന്നരകോടി വിത്തുകളും സൌജന്യമായി വിതരണം ചെയ്യും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും ഈദുൽഫിത്തർ ഒരുമാസത്തെ വ്രതനുഷ്ടാനത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ എത്തുന്ന ഇൌദുൽഫിത്തറിനെ വരവേൽക്കാനൊരുങ്ങി വിശ്വാസി സമൂഹം പെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ വീടുകളിൽ തുടങ്ങി വിപണികളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്

ബസ് അപകടം പാലക്കാട് നിന്നു വിനോദയാത്രക്ക് പോയ ബസ് തമിഴാനാട്ടിലെ മധുരക്ക് സമീപം മറിഞ്ഞ് മൂന്ന് പേർ മരിച്ചു

കൊടുവായൂരിൽ നിന്നും വിനോദയാത്രക്ക് പോയ കുടുംബശ്രീ സംഘത്തിന്റെ ബസ്സാണ് ഇന്ന് പുലർച്ചെ അപകടത്തിൽപെട്ടത്

മറ്റന്നാൾ തിരുവല്ല സെന്റ് ജോൺസ് മെട്രോപ്പൊലീറ്റൻ കത്തീഡ്രലിലാണ് കബറടക്കം ഇന്ന് ഉച്ചവരെ ഭൌതിക ശരീരം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചാപ്പലിലും തുടർന്ന് തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രൽ ദൈവാലയത്തിലും പൊതുദർശനത്തിന് വെക്കും ഇൻഷുറൻസ് ആതിരപ്പിള്ളയിൽ റിസോർട്ടിലെ കിണറ്റിൽ വീണ കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെ രക്ഷപ്പെടുത്തി ചുറ്റുമതിലില്ലാത്ത കിണറ്റിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരക്കാണ് കാട്ടാന കിണറ്റിൽ വീണതായ്ട്രി കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം തുടുങ്ങിയ്ക്കിലും പലപ്പോഴും മഴ തടസ്സമായി

നാളെ നടക്കുന്ന മറ്റൊരു മൽസരത്തിൽ ബംഗ്ലാദേശ് ന്യൂസിലന്റിനെ നേരിടും സ്വർണ്ണം സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ വർധന രേഖപ്പെടുത്തി

ജില്ലാ പോലീസ് മേധാവി പുതിയ അദ്ധ്യായന വർഷം തുടങ്ങാനിരിക്കെ സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഉൌർജിതമായ നടപടികൾ സ്വീകരിക്കമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ജി

അപകടങ്ങൾ ഒഴിവാക്കാൻ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് വാഹന പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു